ഗവൺമെന്റ് പുറത്തിറക്കി

വ്യാവസായിക ഉത്പാദനത്തിൽ വർദ്ധന

സ്ഥിരീകരിച്ച് ഇറാൻ മനുഷൃത്യപരമായ പിഴവെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെന്നും പ്രസിഡന്റ് ഹസൻ റൌഹാനി

നിർദ്ദേശിച്ചു നാല് ഫ്ളാറ്റ് സമുച്ചയങ്ങളിൽ രണ്ട് എണ്ണം നിയന്ത്രിത സ്ഫോടനത്തിലൂടെ തകർത്തൂ

ഇതുസംബന്ധിച്ച വിജ്ഞാപനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചു അയൽ രാജ്യങ്ങളിൽ മതപീഡനത്തിനിരയായി രാജ്യത്ത് അഭയം തേടിയ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പൌരത്വം നൽകാർന്യുദ്ദേശിച്ചുള്ളതാണ് നിയമം

ലക്നൌവിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

പൌരത്വ ഭേദഗതി നിയമത്തിൽ ഒരു മാറ്റവും ഉണ്ടാവില്ലെന്ന് നഖ്വി വ്യക്തമാക്കി

ഈ പോർട്ടൽ വഴി ജനങ്ങൾക്ക് സൈബർ കുറ്റകൃത്യങ്ങൾ ഓൺലൈൻ വഴി റിപ്പോർട്ട് ഉചയ്യാവുന്നതാണ് സൈബർ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലിട്ട് പരാതികളും അതാതു സംസ്ഥാനങ്ങളിലേയും യൂണിയ്ക്കു ടെറിറ്ററികളിലേയും നിയമ വകുപ്പുകളുമായി ബന്ധപ്പെട്ട ഏജ്ൻസികളാണ് കൈകാര്യം ചെയ്യുന്നത്

കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ കീഴിൽ നവീകരിച്ച കൊൽക്കത്തയിലെ പൈതൃക മന്ദിരങ്ങളായ ഓൾഡ് കറൻസി മന്ദിരം ബെൽവെദേർ ഹൌസ് മെറ്റ്കാഫ് ഹൌസ് വിക്ടോറിയ സ്മാരക ഹാൾ എന്നിവ ഇന്ന് പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും

ഹോളി ഫെയ്ത്ത് എച്ച്ടുഒ ആൽഫാസെറീൻ എന്നീ ഫ്ളാറ്റുകളാണ് പൊളിച്ചത് നിശ്ചിത രീതിയിൽ തികച്ചും അപകടരഹിതമായാണ് കെട്ടിട സമുച്ചയം പൊളിച്ചത് ഹോളിഫെയ്ത്ത് ഫ്ളാറ്റാണ് ആദ്യം പൊളിച്ചത്

ഫ്ളാറ്റുകൾ പൊളിക്കുന്നതിന്റെ ഭാഗമായി കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത്

തീരപരിപാലന നിയമം ലംഘിച്ചതിന്റെ പേരിൽ സുപ്രീംകോടതി ഉത്തരവിനെ തുടർന്നാണ് ഫ്ളാറ്റ് സമുച്ചയുങ്ങൾ പൊളിച്ചു നീക്കിയത്

ജൈവ വൈവിധ്യത്തിന്റെ കാര്യത്തിൽ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളും മുൻപന്തിയിലാണ്

രാജ്യത്തിന്റെ വിഷ്ണു് ഭാഗങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തോളം വിദ്യാർത്ഥികളും അദ്ധ്യാപകരും രക്ഷകർത്താക്കളും പരിപാടിയിൽ പങ്കെടുക്കും തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും

ഇന്നലെ ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്

അപകടത്തെ തുടർന്ന് ഇരുവാഫ്നെങ്ങളും തീയിലമർന്നു

മരണമടഞ്ഞവരുടെ ബന്ധുക്കൾക്ക് രണ്ട് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രഖ്യാപിച്ചു പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമായതിനാൽ മരണനിരക്ക് ഇനിയും ഉയരാൻ സാദ്ധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്

രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കാനും സൈനികരുടെയും കർഷകരുടെയും സംഭാവനകളെ പ്രകീർത്തിക്കാനുമായാണ് ബഹദൂർ ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം നൽകിയതെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു ട്വീറ്റ് ചെയ്തു

മൈത്രിപാല സിരിസേന പ്രസിഡന്റായും റനൽ വിക്രമ സിൻകെ പ്രധാനമന്ത്രിയായും സേവനം അനുഷ്ഠിച്ച കാലഘട്ടത്തിലെ ആരോപണങ്ങളാണ് അന്വേഷിക്കുക

മനുഷ്യ സഹജമായ പിഴവുമൂലമാണ് മിസൈൽ യാത്രാ വിമാനത്തിൽ പതിയ്ക്കാനിടയായതെന്ന് പ്രസിഡന്റ് ട്വീറ്റ് ചെയ്തു

ഇക്കാരൃത്തിൽ അന്വേഷണം തുടരുകയാണെന്നും കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷ ഉറപ്പാക്കുമെന്നും ഇറാന്റി ട്ടി

വിമാനമ്പ് ത്തകർന്നുവീണതിനെ തുടർന്ന് ജീവനക്കാരടക്കം എല്ലാവുരും കൊല്ലപ്പെട്ടിരുന്നു

എസ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോയും ട്രഷറി സെക്രട്ടറി സ്റ്റീവൻ മ്യൂചിനും ഇന്നലെയാണ് ഈ പ്രഖ്യാപനം നടത്തിയത് ഇറാഖിലെ യു എസ് സൈനിക ക്യാമ്പുകളിലേക്ക് ഇറാൻ മിസൈൽ വിട്ടതിന് ദിവസങ്ങൾ കഴിഞ്ഞാണ് പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഇറാനിലെ എട്ട് മുതിർന്ന ഈ ഉദ്യോഗസ്ഥർക്കെതിരെയും ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്

വെള്ളിയാഴ്ചയായിരുന്നു അന്ത്യമെന്ന് ഔദ്യോഗിക വാർത്താക്കുറിപ്പ് അറിയിച്ചു ആധുനിക ഒമാന്റെ ശില്പി എന്നറിയപ്പെടുന്ന സുൽത്താൻ അസുഖബാധിതനായി ഏറെ നാളായി ചികിത്സയിലായിരുന്നു

ഇന്ത്യയുടെ യഥാർത്ഥ സുഹൃത്തായിരു്നു സുൽത്താനെന്ന് പ്രധാനമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു

ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി ശങ്കർ ദയാൽ ശർമ്മ സുൽത്താന്റെ ഗുരുസ്ഥാനീയനാണ്